കണ്ണൂർ വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്ന് ഉദ്ഘാടനം നിർവ്വഹിക്കും രാവിലെ ആറുമണിക്ക് ആദ്യ വിമാനത്തിലെ യാത്രക്കാർക്ക് മട്ടന്നൂർ സഹകരണ ബാങ്ക് പരിസരത്ത് സ്വീ കരണം നൽകും വി ഐ പി ലോഞ്ച് എ ടി എം ഫോറിൻ എക്സ്ചേഞ്ച് കൌണ്ടർ മലബാർ കൈത്തറി ഇൻസ്റ്റലേഷൻ അനാച്ഛാദനം ഫുഡ് ആൻ ഡ് ബീവറജ്സ് തുടങ്ങിയ വിവിധ സേവനങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന മന്ത്രിമാർ നിർവ്വഹിക്കും

ചലച്ചിത്രമേളയുടെ ഭാഗമായി വൈകിട്ട് നടന്ന ഓപ്പൺ ഫോറം സംവിധായകയും നടിയുമായ നന്ദിതദാസ് ഉദ്ഘാടനം ചെയ്തു ആൾക്കൂട്ട സെൻസറിംഗിലെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ കുമാർ സാഹ്നി ജയൻ ചെറിയാൻ എന്നിവർ പങ്കെടുത്തു